ബ്രിക്സ് ഉച്ച്കോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

പ്രമുഖ ഐ ടി കമ്പനിയായ ടെക് മഹേന്ദ്രയും കേരളത്തിലേക്ക്

മൂന്ന് മാസത്തിനകം തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിൽ ഓഫീസ് ആരംഭിക്കും

വിവിധ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക വരൾച്ച സ്ഥിതിയെക്കുറിച്ച് ലോക്സഭയിൽ നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രം ഈ ഉറപ്പ് നൽകിയത് ഫണ്ട് വിതരണത്തിൽ ഒരു സംസ്ഥാനത്തോടും വിവേചനം ഉണ്ടാകില്ലെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു വെള്ളപ്പൊക്ക ദുരന്തം നേരിടുന്ന കേരളത്തിലെ സ്ഥിതി വിലയിരുത്താൻ ഈ ആഴ്ച തന്നെ മന്ത്രിത്ലി സംഘം സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു

ദുരന്തസാഹച്രൃം നേരിടാൻ സന്നദ്ധരായി ദേശീയ ദുരന്ത പ്രതികരണസേന്യുടെ നാലു സംഘം കേരളത്തിൽ ഉണ്ടെന്നും മന്ത്രി അറിയിച്ചു

ഉച്ചകോടിയുടെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരുമായി ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

അന്താരാഷ്ട്രസമാധാനവും സ്പൂർക്ഷയും ഭരണനിർവ്വഹണം വ്യാപാര പ്രശ്നങ്ങൾ തുടങ്ങിയ ഗൌര്വകരമായ ആഗോള വിഷയങ്ങളെല്ലാം ഉച്ചകോടിയിൽ ചർച്ചയാക്ടൂര് മോഡിയെ കൂടാതെ ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ അംഗരാജ്യങ്ങളുടെ തലവൻമാരും ബ്രിക്സ് ഉച്ച്കോടിയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെ ബ്രിക്സ് ബിസിനസ് ഫോറം മീറ്റോടെ തുടക്കമായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ദശാബ്ദമാണ് ഈ വർഷമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ അഭിവാദ്യ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ന്യൂ ഡെവലപ്പ്മെന്റ് ബാങ്ക് രൂപീകരണം ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഇക്കാലയളവിൽ സാധ്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു

ആഫ്രിക്കയിലെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാനപാദത്തിലാണ് ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

യുദ്ധത്തിൽ ജീവത്യാഗം പ്പിയ്തവരെ രാഷ്ട്രം ഇന്ന് സ്മരിക്കുന്നു

കാർഗിലിലെ ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ മൂന്ന് ദിവസത്തെ ആഘോഷ പരിപാടികൾ നടക്കും ആദ്യ ദിനമായ ഇന്ന് യുദ്ധവീരന്മാരുടെ കുടീരത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും

പി മാരുടെ രണ്ടാമത് സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും

രാജ്യത്തെ പൌരൻമാർക്ക് ഫലപ്രദമായ രീതിയിൽ മികച്ച സേവനം കാഴ്ച വയ്ക്കാൻ സാങ്കേതിക മികവ് ഉപയോഗപ്പെടുത്തുന്നതിന് യുവ പോലീസ് മേധാവികൾക്കും കമ്മാൻഡൻസിനും അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം

ന്യൂഡൽഹിയിൽ വ്യാപാരികളുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതുസംബന്ധിച്ച് ഉപഭോക്തൃകാര്യമന്ത്രാലയ്ത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചില്ലറ വ്യാപാര മേഖലയിൽ നേരിട്ടൂള്ള വിദേശ നിക്ഷേപം അനുവദിക്കുന്നതോടൊപ്പം ഉപ്പറുകിട് വ്യാപാരികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും

ജെ

വോട്ടെണ്ണൽ ഫലം പുറത്തുവരാൻ വൈകുന്നതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സർദാർ റാസഖാൻ ഇന്ന് പുലർച്ചെ വാർത്താസമ്മേളനം നടത്തി

പാർലമെന്റിന്റെ അധോസഭയായ ദേശീയ അസംബ്ലിയിലേക്കും നാല് പ്രവിശ്യാ അസംബ്ലികളിലേക്കും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത് കുറ്റയിലെ പോളിങ് സ്റ്റേഷനിൽ ഐ

ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള തെക്കൻ പ്രവിശ്യയിൽ ഐ

നഗരമധ്യത്തിലും വടക്കും കിഴക്കുമുള്ള ഗ്രാമങ്ങളിലുമാണ് ചാവേറാക്രമണം

മൂന്നു മാസ്ത്തിനകം തിരുവനന്തപുരത്തെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും

നിസാൻ മോട്ടോർ കമ്പനിയുടെ ഗ്ലോബൽ ഡിജിറ്റൽ ഹബ്ബിന്റെ പ്രവർത്തനങ്ങൾ അടുത്തിടെ ടെക്നോപാർക്കിൽ ആരംഭിച്ചിരുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് രാജ്യത്തെ പ്രധാനഐടി കമ്പനികളിൽ ഒന്നായ ടെക് മഹീന്ദ്രയും എത്തുന്നത് ഏറ്റവും വലിയ ഇന്ത്യൻ ഐടി കമ്പനികളിൽ ആദ്യ അഞ്ചെണ്ണവും സംസ്ഥാനത്തു സാന്നിധ്യമുറപ്പിച്ചുവെന്ന ചരിത്രനേട്ടം ഇതോടെ കേരളത്തിനു സ്വന്തമായി

നോക്കൌട്ട് ഘട്ടത്തിലേക്കുള്ള സാധ്യരു നില്നിർത്താൻ ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്

ജപ്പാനെതിരെ കൊളംബിയയുടെ യുവാൻ കിന്റെറോയുടെ ഫ്രീകിക്കാണ് രണ്ടാമത്തെ മികച്ച ഗോൾ അർജന്റീനക്കെതിരായ ക്രൊയേഷ്യൻ ക്യാപ്റ്റൻ ലൂക്കാ മോഡ്രിച്ചിന്റെ ലോങ്റേഞ്ചറാണ് മൂന്നാമത്തെ മികച്ച ഗോൾ

ഇതോടെ ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറി

ചൊവ്വയിൽ കണ്ടെത്തുന്ന ഏറ്റവും ബൃഹത്തായ ജലശേഖരമാണിത്

ആഗ്സ്റ്റ് ഒന്നിനാണ് സംസ്ഥാനത്തുനിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം നെട്ടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്രതിരിക്കുന്നത്

പള്ളൂരുത്തി സ്വദേശി സനീഷിനെയാണ് പോലീസ് പിടികൂടിയത്